പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ആശുപത്രികളെ സമീപിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

നൽകണമെന്ന് കേന്ദ്രത്തിന് സൂപ്രീംകോടതിയുടെ നിർദ്ദേശം

പി സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഗാന്ധി നഗറിൽ നടക്കുന്ന സമ്മേളനം വീഡീയോ കോൺഫറൻസിങ്ങിലൂടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

വന്യജീവികളുടെയും ആവാസ്ട്ര വൃ്വസ്ഥയുടെയും പരിപാലനം ഇന്ത്യൻ സംസ്കാരത്തിന്റെട്ടു ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു

ഹരിത വികസന മാതൃക സുസ്ഥിര ജീവിതശൈലി സംരക്ഷണം എന്നീ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് രാജ്യം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവ്ദേക്കർ ബാബുൾ സുപ്രിയോ സി എം എസ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആമി ഫ്രാനെൻകൽ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റൂപാനി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശാടകർക്ക് ആതിഥ്യമരുളാം എന്നതാണ് ഇത്തവണത്തെ സമ്മേളനത്തിന്റെ പ്രമേയം

പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിർഭയയുടെ മാതാപിതാക്കളും ഡൽഹി ഗവൺമെന്റും നൽകിയ ഹർജിയിലാണ് നടപടി

ജയ്പൂരിലെ ചില സ്വർണ കടകൾ കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് സ്വർണം കൈമാറുന്നുണ്ടെന്ന വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചു വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന

ഇഗ്നോ പോലുള്ള സ്ഥാപനങ്ങൾ ഇക്കാരൃത്തിൽ നിർണ്ണായക പങ്കുവഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

ഇന്നലെ മുതൽ ഉത്തരവ് നിലവിൽ വന്നു

സാമൂഹ്യ മാധ്യമങ്ങൾക്കും സ്വകാര്യ നെറ്റ്വർക്കുകൾക്കും നിയന്ത്രണമുണ്ട്

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും സർവകലാശാലയോടും പോലീസിനോടും കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്

സഹകരണ ആശുപത്രി സമുച്ചയത്തിന്റെ കൊല്ലത്ത് ഉദ്ഘാടനും നിർവഹിക്കുകയായിരുന്നു മുഖ്യമൃത്ത് മഴക്കാലം പോലെ സീസണുകളിൽ മാത്രമല്ലാതെ ക്ഷർഷ്ട് മുഴുവൻ ജാഗ്രതയോടെ രോഗപ്രതിരോധ പ്രവർത്തനും തുടരുന്നതിനാലാണ് പ്രതിരോധ മരുന്നുകൾ കണ്ടെത്തിയിട്ടില്ലാത്ത രോഗങ്ങളെപ്പോലും അതിജീവിക്കാൻ സാധിക്കുന്നതെന്നും ശ്രീ

ശാരീരിക പ്പിര്യമിതികളും സാമൂഹിക സാഹചര്യങ്ങളും ചൂണ്ടിക്കൂട്ടിക്ക് വനിതകൾക്ക് സ്ഥിരം കമ്മീഷൻ നൽകാനാവില്ല്സ്ന ്കേന്ദ്രത്തിന്റെ വാദം ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബഞ്ച് തള്ളി വനിത ഓഫീസർമാർ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ സമ്മാനിച്ച ചരിത്രം ചൂണ്ടിക്കാട്ടിയ കോടതി കരസേനയിലെ ലിംഗവിവേചനം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു

ഇങ്ങനെ ചെയ്യുന്ന ലോകത്തെ ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയെന്നും മന്ത്രി അറിയിച്ചു മുംബൈയിലെ ഹജ്ജ് ഹൌസിൽ യാത്രികർക്കും പരിശീലകർക്കുമുള്ള പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്തി

ഓൺലൈൻ ആപ്പേക്ഷ ഇ വിസ ഹജ്ജ് മൊബൈൽ ആപ്പ് മസിഹ ആരോഗ്യ സംവിധാനം എന്നിവ ഹജ്ജ് യാത്ര സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ഡിജിറ്റലായി ലഭ്യമാക്കാൻ സജ്ജമ്മാക്കിയ നൂതന സംവിധാനങ്ങളാണ് യാത്രികരുടെ താമസവും സഞ്ചാരവും സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഇവ വഴി ലഭ്യമാകും ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോ

വുഹാനിൽ നിന്നും രാജ്യത്തേക്ക് തിരിച്ചെത്താനാഗ്രഹിക്കുന്നു് ഇന്ത്യക്കാരെ വിമാനത്തിന്റെ മടക്കയാത്രയിൽ തിരികെയെത്തിക്കുമെന്ന് ബീജിങ്ങിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം വൃക്ത്മിടുക്കി കഴിഞ്ഞ രണ്ടാഴ്ചയായി വുഹാനിലുള്ള നിരവധി ഇന്ത്യക്കാർ നയതന്ത്ര കാര്യാലയവുമായി ബന്ധപ്പെട്ടുവരികയാണ് ഈ ആഴ്ച അവസാനത്തോടെ പുറപ്പെടുന്ന വിമാനത്തിൽ യാത്രക്കാരെ ചുരു്ക്കം മാത്രമാണ് വഹിക്കാനാവുകയെന്നും നയതന്ത്ര കാര്യാലയം അറിയിച്ചു

ജമ്മുകാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതിനുശേഷം നടക്കുന്ന ആദ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്

ജവഹർലാൽ നെഹ്റു സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ഉദ്ഘാടന ചടങ്ങളിൽ സംസ്ഥാന കായിക മന്ത്രി ബന്റിഡോർ ലിംഗ്തെട്ട് സ്ന്നിഹിതനായിരുന്നു

മറ്റൊരു ഇന്ത്യൻ താരമായ പി

നാളെ നടക്കുന്ന ആറാം റൌണ്ട് മത്സരത്തിൽ ഫെരികൃഷ്ണൻ ഡേവിഡ് ആന്റനെയും വിദിത് ഗുജറാത്തി ഏറ്റ്യൂഗോവയെയും നേരിടും